സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു

സർക്കാർ മന്ദിരങ്ങളുടെ പ്രവേശന കവാടത്തിൽ തെർമൽ സ്കാനറുകൾ സ്ഥാപിക്കണമെന്ന് കേന്ദ്രസർക്കാർ നിർദ്ദേശം

ജാഗ്രതയിൽ ഇനിയുള്ള രണ്ടാഴ്ചകൾ നിർണായകം

തെളിയിക്കണമെന്ന ആവശ്യത്തിൻ മേൽ സുപ്രീം കോടതി സംസ്ഥാനസർക്കാരിന്റെ വിശദീകരണം തേടി

മാധ്യമങ്ങളുടെ മാർ സഹായത്തോടെ അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ംബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ളാദ് ജോഷി പറഞ്ഞു ബിജെപി പാർലമെന്ററി പാർട്ടി യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊറോണ വൈറസ് നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ കേന്ദ്രം സ്വീകരിച്ച നടപടികൾ ആരോഗൃ മന്ത്രി ഹർഷ വർദ്ധൻ യോഗത്തിൽ അവതരിപ്പിച്ചു

ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ബീഹാർ പശ്ചിമബംഗാൾ സിക്കിം അസം അരുണാചൽപ്രദേശ് മിസോറാം മണിപ്പൂർ ത്രിപുര നാഗാലാന്റ് മേഘാലയ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുമായും ശ്രീ ക്രഅജയ്ഭല്ല വീഡിയോ കോൺഫറൻസിംഗ് നടത്തി കൊറ്റോൺ വൈറസ് പ്രതിരോധ നടപടികളെ കുറിച്ച് അതിർത്തി പ്ര്ദേശങ്ങളിലെ ജനങ്ങളിൽ ഗ്രാമസഭകൾ വഴി ബോധവത്ക്കർണം നടത്തിയിട്ടുണ്ട്

കൈകൾ ശുചീകരിക്കാനുള്ള സാനിറ്റൈസറുകൾ ഉറപ്പായും പ്രവേശന കവാടത്തിൽ കരുതണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു

തൊഴിലിടങ്ങൾ ഒന്നിലേറെ തവണ ശുചീകരിക്കണം

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്

സന്ദർശിക്കണമെന്നും അദ്ദേഹം അവിടത്തെ സജ്ജീകരണങ്ങളെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രാലയത്തിന് വിവരം നല്കണമെന്നും കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു

ഇത് കൂടാതെ രണ്ട് അതിവേഗ പരിശോധന ലബോറട്ടറികൾ കൂടി ഐസിഎംആർ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ആർ ഡി

ഇന്ത്യയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വലിയ സാധ്യതയുണ്ടെന്നും കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്നതിൽ ഇന്ത്യയും ഭാഗമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ശിവരാജ് സിംഗ് ചൌഹാന് പുറമേ മറ്റ് ഒമ്പത് ബി ജെ പി എം എൽ

പി പ്രജാപതി നിർത്തിവച്ചതിനെ തുടർന്നാണ് ഇവർ സുപ്രീംകോടതിയിലെത്തിയ്

സൂപ്രീം കോടതി നോട്ടീസ് അയച്ചതിനെ തുടർന്ന് ഭോപ്പാലിൽ ഉന്നതതല യോഗം ചേർന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കളായ ദിഗ് വിജയ് സിംഗ് അജയ് സിംഗ് എന്നിവരും പങ്കെടുത്തു അതിനിടെ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി ശ്രീ കമൽനാഥ് വീണ്ടും ഗവർണർക്ക് കത്തയച്ചു

കമൽനാഥ് സർക്കാർ സംസ്ഥാനത്ത് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും അവർ കുറ്റപ്പെടുത്തി

കേന്ദ്രസർക്കാർ പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനം

കന്യാകുമാരി മുതൽ കശ്മീർ വരെ ബന്ധിപ്പിക്കുന്ന റെയിൽവേയെ ലോകോത്തര നിലവാരത്തിലുളളതാക്കി മാറ്റാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു മിക്ക റെയിൽവേ പദ്ധതികളും നിശ്ചിത സമയത്തിൽ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് രാജ്യസഭയിൽ ഒരു ചോദൃത്തിന് മറുപടി നൽകുകയായിരുന്നു ശ്രീ പിയൂഷ് ഗോയൽ

രാജ്യാന്തര സിവിൽ വ്യോമ ഗതാഗത സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഇതിലൂടെ കഴിയും ബിൽ നിയമമാകുന്നതോടെ രാജ്യത്തെ ക്ട്സ്ട്രിവിൽ വ്യോമയാന മേഖലയിൽ മൂന്ന് നിയന്ത്രണ സംവിധാനങ്ങൾ നിലവിൽ വരും

രാജ്യത്തെ വ്യോമഗ്താഗതത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇതിലൂടെ കഴിയും